പുൽവാമ ഭീകരാക്രമണത്തിലെ ജവാന്മാരുടെ ജീവത്യാഗം ഭീകരപ്രവർത്തകർക്കെതിരെ പോരാടാനുള്ള ജനങ്ങളുടെ ആത്മധൈരൃം ഉയർത്തിയതായി പ്രധാനമന്ത്രി ന്റരേന്ദ്രമോദി

പ്രധാൻ മന്ത്രി കിസ്സാൻ സമ്മാൻ നിധി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്ട് ഫെഡറേഷൻ ലോക കപ്പിൽ ഇന്ത്യയുടെ ടീനേജ് താരം സൌരഭ് ചൌധരി ലോക റെക്കോർഡോടെ സ്വർണ്ണം കരസ്ഥമാക്കി

ജവാന്മാരുടെ ജീവത്യാഗം ഭീകരപ്രവർ ത്തകർക്കെതിരെ പോരാടാനുള്ള ജനങ്ങളുടെ ആത്മധൈര്യം ഉയർ ത്തി

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് വോയിസ് കൃ രാജ്യത്തെ ജനങ്ങൾക്കുവേണ്ടി ധ്വീർമ്മാർട്ടിയ സൈനികർ വളരെ വലിയ ജീവത്യാഗമാണ് ചെയ്തത്ക് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനം പ്രൂനസ്ഥാപിക്കാൻ എല്ലാവരും ജാഗ രൂകരായിരിക്കണമെന്ന് പ്രധാന്നമന്ത്രി മൻ കി ബാതിൽ പറഞ്ഞു

അടുത്ത ആഴ്ചകളിൽ നടക്കുന്ന പത്താം ക്ലാസിലെയും പന്ത്രണ്ടാം ക്ലാസിലെയും ബോർഡ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാ ഭാവുകങ്ങളും അദ്ദേഹം നേർന്നു അടുത്ത രണ്ട് മാസം രാജ്യം പൊതുതെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ ആവുകയാണ് ആരോഗ്യകരമായ ജനാധിപത്യ പാരമ്പര്യത്തെമാനിച്ചുകൊണ്ട് അടുത്ത മൻ കി ബാത് മെയ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാവും ഉണ്ടാവുകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പദ്ധതിയിൻകീഴിൽ തെരഞ്ഞടുക്കപ്പെട്ട കർഷകർക്ക് പ്രധാനമന്ത്രി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു

സ്വച്ഛ് കുംഭ് സ്വച്ഛ് ആഭാർ പദ്ധതി യുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെ രാജ്യം അടുത്തുതന്നെ വെളി യിട വിസർജ്ജന രഹിത രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു പ്രധാനമന്ത്രി എന്ന നിലയിൽ ്തനിക്ക് ലഭിച്ച പുരസ്ക്കാരങ്ങളും സംഭാവനകളും ഗംഗാ ശുചീകരണത്തി നായി വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രദേശ ത്തെ ജനങ്ങളുടെ ജീവിത് പനിലവാരം ഉയർത്തുന്നതോടൊപ്പം ടൂറിസം വികസനം ് സ്ണ്പെത്തിക ഉന്നമനം സുരക്ഷിതയാത്ര കുറഞ്ഞ യാത്രാ സമ്യൂട്ട് തുടങ്ങിയവയെല്ലാം പദ്ധതി വിഭാവനം ചെയ്യുന്നു ചടങ്ങിൽ മുഖ്യമന്ത്രി ജയ്റാം ഠാക്കൂർ കേന്ദ്രമന്ത്രി ജെ

നദ്ദ മുൻ മുഖ്യമന്ത്രി ശാന്തകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു

പുൽവാമ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജമ്മു കാശ്മീർ ഡി ഐ ജി അമിത് ്കുമാറിന്റെ ആരോഗ്യനില അറിയാ നാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയത് അമിത് കുമാറിനെ പോലുള്ള ഓഫീസർമാർ സേനാംഗങ്ങൾക്ക് പ്രചോദനമാണെന്നും കേന്ദ്രമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പുൽവാമ യിലെ പിൻഗ്ലാൻ പ്രവിശ്യയിൽവെച്ച് ഡി ഐ

ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയശേഷം അമിത് കുമാറിനെ വെള്ളിയാഴ്ച രാത്രിയോടെ എയിംസിൽ എത്തിക്കുകയായിരുന്നു

ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ പ്രയോ ജനം ലഭിക്കും

ജമ്മു വിലെ സംസ്ഥാന ഉപദേശക സമിതിയോഗത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി വിനോദ്

ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധി ച്ച് കൂടുതൽ അർദ്ധസൈനികരെ സംസ്ഥാനത്ത് നിയോഗിക്കേണ്ട തുണ്ട് ഇത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാണണമെന്നും ഗവർ ണർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനികർക്ക് സുരക്ഷാ നടപടികൾ എടുക്കേ ണ്ടി വന്നിട്ടുണ്ട് കാശ്മീരിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും സുരക്ഷാ സംവിധാ നവും സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൃക്ത മായ നിർദ്ദേശങ്ങൾ നൽകിയതായും ശ്രീ

കാശ്മീരിനുവേണ്ടിയാണ് സൈനിക നടപടികളെന്നും ഇത് കാശ്മീരിലെ ജനങ്ങൾക്ക് എതിരല്ലെന്നുമുള്ള പ്രധാനമന്ത്രി യുടെ പ്രസ്താവന കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെ ന്നുള്ള സന്ദേശമാണ് നൽകുന്നതെന്നും ശ്രീ സത്യപാൽ മാലിക് പറഞ്ഞു

ജെ

ഭീകരാക്രമണത്തിൽ രക്തസാ ക്ഷിത്വം വരിച്ചവർക്ക് ആദ്യാർജ്ജലി അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു റാലിയിൽ സ്കാസ്ട്രീക്കുകയായിരുന്നു അദ്ദേഹം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ർട്വിഭാജ്യ ഘടകമാണെന്നും അത് അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തിന്റെ എല്ലാ പ്രദേശങ്ങളുടെയും സമഗ്രവികസനത്തിന് എൻ

ഒരു മുതിർന്ന പൊലീസ് ഉദ്യോഗസ്ഥൻ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചു

അരുണാചലിലെ ജനങ്ങളെല്ലായ്പ്പോഴും വിവേകവും പക്ഷതയും യുക്തിഭദ്രതയും പുലർത്തിയിട്ടുള്ളവരാണെന്നും ഇത് നിലനിർത്ത ണമെന്നും ഗവർണർ പറഞ്ഞു സമൂഹത്തിലെ മുതിർന്നവർ യുവജനങ്ങൾക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചുകൊടുക്കാൻ മുന്നോട്ട് വരണ മെന്നും പൊതു സ്വത്തുക്കൾ നശിപ്പിക്കുന്നതും വിധംസകശീലം വച്ചുപുലർത്തുന്നതും സാമൂഹിക് തിന്മകളാ ണെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് പ്രതിഷേധ ത്തിലേർപ്പെട്ടിരിക്കുന്നവർ കുറ്റകരമായ പ്രിപ്പർത്തനങ്ങൾ നടത്തുക യാണെന്നും ഇതി നെതിരെ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഗവർണർ ആപ്ൽപ്പെട്ടു

നീക്കത്തെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് പ്രദേശവാസികളെ പ്രകോപിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

അരുണാചൽ പ്രദേശിൽ ആറ് ജനവിഭാഗങ്ങൾക്ക് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ചുള്ള ഗവൺമെന്റ് നടപടിക്കെതിരെയാണ് പ്രതിഷേധം എന്നാൽ ഇത് സംബന്ധിച്ച് ്തുടർ നടപടികളൊന്നും എടുത്തിട്ടില്ലെന്ന് സംസ്ഥാന ഗവൺമെന്റ് വൃക്തമാക്കി സ്ഥിതി ഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പൊലീസും സൈന്യവും ഇറ്റാ നഗറിലും സമീപപ്രദേശങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട്